ഇന്ത്യയിലെത്തിയ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഇന്ന് ഡോ

ഓസ്ട്രേലിയയ്ക്കെതിരെ മെൽബണിൽ നടക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ ലീഡ്

ലോതേയ് ഷെറിങ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ധ്യുമായി കൂടിക്കാഴ്ച നടത്തും

ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സൌഹൃദം സഹകരണം തുടങ്ങിയവ വ്യാപിപ്പിക്കുക എന്നതും ചർച്ചാവിഷയമാകും

തുടർന്ന് രാജ്ഘട്ടിൽ എത്തിയ അദ്ദേഹം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം

ധനമന്ത്രി അരുൺജെയ്റ്റ്ലി വിദേശകാരൃമന്ത്രി സുഷമ സ്വരാജ് വാണിജ്യമന്ത്രി സുരേഷ് പ്രഭു ഊർജ്ജമന്ത്രി ആർ

സിങ് എന്നിവരും ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുളള നയതന്ത ബന്ധത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിലാണ് ഭൂട്ടാൻ പ്രധാനമന്തിയുടെ സന്ദർശനം

ഹിമാചൽപ്രദേശ് ഗവൺമെന്റിന്റെ ഒന്നാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ധരംശാലയിൽ സംഘടിപ്പിച്ച പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയിലൂടെ സൈനികരെ തെറ്റിദ്ധരിപ്പിച്ച പോലെ കാർഷിക വായ്പ എഴുതിതള്ളുമെന്ന പേരിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസ്സ് ശ്രമിക്കുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി ആരോപിച്ചു

മുസ്ലീം വനിതകളുടെ വിവാഹ അവകാശ സംരക്ഷണം ഇറ്റ്യു നൽകുന്ന ബിൽ മുത്തലാഖ് ചൊല്ലുന്നത് മൂന്ന് ്വിർഷ്ണം് വരെ ജയിൽ ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കുറ്റമാക്കി്ടു ബില്ല് ഒരു മതത്തിന്റേക്ക് സമുദായത്തിനോ എതിരല്ലെന്നും സ്ത്രീകൾക്ക് നീതി ലഭ്യ്മാക്കുകയാണ് ലക്ഷ്യമെന്നും നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ലോക്സഭയിൽ പറഞ്ഞു ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം നിയമമന്ത്രി അംഗീകരിച്ചില്ല

മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസ് ആർ

ഡി എസ് പി എൻ

പി തുടങ്ങിയ പാർട്ടികൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭരണഘടനാ വിഷയമായതിനാൽ കൂടുതൽ പഠനം ആവശ്യമാണെന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജൻ ഖാർഗെ ആവശ്യപ്പെട്ടു

ഡി എം കെ സി

എം ആർ

ഡി എസ് പി മുതലായ പാർട്ടികൾ കോൺഗ്രസ് നിലപാടിനെ അനുകൂലിച്ചു

ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തിയാണ് വിദേശകാര്യമന്ത്രാലയം പ്രതിഷേധം അറിയിച്ചത് ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാന്റെ പിന്തുണയുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം പാക് ഹൈക്കമ്മീഷണറെ അറിയിച്ചു

മരിച്ചവരിൽ നാല് മുതിർന്ന പൌരൻമാരും ഉൾപ്പെടുന്നു

നിയന്ത്രണവിധേയമാണെന്ന് ദുരന്തനിവാരണസേന തീപിടിത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല

ന്യൂഡൽഹിയിലെ മനുഷ്യാവകാശ കമ്മിഷൻ ആസ്ഥാനമായ മാനവ് അധികാർ ഭ്യപ്പ്നിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ കമ്മിഷൻ അധ്യക്ഷൻ ജ്സ്റ്റിസ് എച്ച് എൽ ദത്തുവാണ് ടോൾ ഫ്രീ നമ്പർ പുറൃത്തിറക്കിയത്

റഫേൽ യുദ്ധവിമാന ഇടപാട് കാവേരി വിഷയം തുടങ്ങിയവയാണ് ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളത്തിന് കാരണമായത്

സഭാ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരും സഹകരിക്കണമെന്ന് പാർലമെന്ററികാര്യ സഹമന്ത്രി വിജയ് ഗോയൽ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു

ലോക്സഭയിൽ വനിതാ സംവരണ ബിൽ ജെ പി സി അന്വേഷണം തുടങ്ങിയ വിഷയം ഉന്നയിച്ച് സി പി ഐ എം അംഗങ്ങൾ ബഹളം വച്ചു തുടർണ്ണ് റ്റലോക്സഭ ഉച്ചവരെ നിർത്തിവച്ചിരിക്കുകാണ്

വിശദവിവരങ്ങളുമായി സോഫിയ

എതിരാളികളെ ഫോളോ ഓൺ ചെയ്യിക്കാതെ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യാനിറങ്ങി വിക്കറ്റ് നഷ്ടമാകാതെ എട്ട് റൺസ് എന്ന നിലയിലാണ് ഓസ്ട്രേലിയ മൂന്നാം ദിവസം ബാറ്റിംഗ് തുടങ്ങിയത്

ആറ് വിക്കറ്റുകൾ നേടിയ ബുംറയാണ് ഓസീസ് ടീമിനെ തകർത്തത് ജഡേജ രണ്ടും ഇഷാന്ത് ശർമ്മ മുഹമ്മദ് ഷമി എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി ഓസ്ട്രേലിയൻ ടീമിൽ ഒരാൾക്കും അർദ്ധ സെഞ്ച്വറി നേടാനായില്ലു

രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയി ഇന്ത്യയുടെ തുടക്കവും മോശമായിരുന്നു

മുംബൈയിലെ എം എം ആർ ഡി എ ഗ്രൌണ്ടിൽ നടക്കുന്ന പരിപാടി നാളെ സമാപിക്കും

പാർലമെന്റിന് പുറത്ത് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏജൻസിയുടെ ജാഗ്രതമൂലം കഴിഞ്ഞ നാലരവർഷത്തിനിടെ ഇന്തൃയിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

എസ് മെക്സിക്കോ അതിർത്തിയിൽ മതിൽ യു നിർമ്മിക്കുന്നത് സംബന്ധിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൽ മാറ്റം വരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ക്രിസ്തുമസ് അവധിക്കുശേഷം ഇന്നലെ ചേർന്ന സെനറ്റ് യോഗം ഉടൻതന്നെ നിർത്തിവെച്ചു